നാരായണനും ചരിത്രകാരൻ കെ

മുഹമ്മദും അടക്കമുള്ളവർ രണ്ടാം ഘട്ടമായി രാഷ്ട്രപതിയിൽ നിന്നും പദ്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി

പദ്ധതികൾ സംസ്ഥാനത്ത് നിടപ്പാക്കാനുള്ള പ്രാരംഭ ചർച്ചയ്ക്കായി യു

സ്ഥാനാർഥി നിർണയത്തിനായി ബി ജെ

കേന്ദ്ര ന് തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ചേരും കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേയ്ക്കും

പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ പ്രചാരണ പരിപാടികൾ സജീവമാക്കി തെഞ്ഞെടുപ്പ് കമ്മീഷൻ

ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ് പദ്മ പുരസ്കാരം ബഹിരാകാശ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്നും പദ്മഭൂഷൻ പുരസ്കാരം ഏറ്റുവാങ്ങി

മലയാളിയായ പ്രമുഖ ചരിത്രകാരൻ കെ

ചലച്ചിത്രതാരം മോഹൻലാൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി

സംഘം ഐക്യരാഷ്ട്ര സഭയുടെ ദുരന്ത് ല്ഘൂകരണ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിനുള്ള പ്രാരംഭഘട്ട ചർച്ചയ്ക്കായി യു

ഇതിന്റെ ഭാഗമായി ത്വിരുവിനന്തപുരത്ത് എത്തിയ ഐകൃരാഷ്ട്ര സംഘ്ടന്റയുടെ ദുരന്ത ലഘൂകരണവിഭാഗം സീനിയർ അഡൈസർ ഡോ കാരൻ സഡ്മെയർറീയു യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമുമായി ചർച്ചനടത്തി കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ സംരംഭമായ ഗ്രീൻ യൂത്ത് ഇനിഷിയേറ്റീവിനു കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് പരിസ്ഥിതി സൌഹൃദ ദുരന്ത ലഘൂകരണത്തിൽ ശാസ്ത്രീയ പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതായി ചിന്ത ജെറോം അറിയിച്ചു

സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർമാർ മെഷീനുകൾ നിന്നു പരിചയപ്പെടുത്തും

കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവത്കരണ പരിപാടിയായ സ്വീപിന്റെ ഭാഗമായാണ് പ്രത്യേകം സ്തജ്ജീകരിച്ച ഓട്ടോറിക്ഷ വോട്ടോറിക്ഷയായി പര്യട്ട്നും നടത്തുന്നത്

വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ഥാനാർഥികളെ നിശ്ചയിക്കാനാണ് ഇന്ന് യോഗം ചേരുന്നത്

സംസ്ഥാന നേതൃത്വം സ്ഥാനാർഥി പട്ടിക ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഡൽഹിയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും

ഇന്ന് പകലും നേതാക്കൾ അനൌപചാര്യിക ചർച്ചകൾ തുടരുകയാണ്

സംസ്ഥാനത്ത് എൽഡിഎഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ രണ്ട്രാം ഘട്ടത്തിലേക്ക് കടന്നു സ്ഥാനാർഥികളുടെ മണ്ഡല പര്യടനത്തിന് കഴിഞ്ഞ ദിവസം തുടക്കമായി

ഡി എഫിന്റെ ബൂത്തുതല പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും

തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒമ്പത് ചെക് പോസ്റ്റുകളിലും പരിശോധന തുടങ്ങി

പണത്തിന്റെ രേഖകൾ ഹാജരാക്കാനായില്ലെങ്കിൽ തുക പിടിച്ചെടുക്കും രേഖകൾ ഹാജരാക്കുന്ന പൊതുജനങ്ങൾക്കും വ്യവസായിക ആവശ്യത്തിന് പണം കൈമാറുന്നവർക്കും പരിശോധനകളിൽ ഇളവുനൽകുമെന്നും തമിഴ്നാട് അധികൃതർ പറഞ്ഞു

ഈ ജില്ലകളിൽ കൂടിയ താപനില രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ വർദ്ധിക്കാമെന്ന് ദുരുന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടൂണ്ട്

പകൽ പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയിലാണ് ജില്ലയിലെ ജനങ്ങൾ വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

ജലക്ഷാമം രൂക്ഷമാകാതിരിക്കാൻ ജലദുരുപയോഗം ഒഴിവാക്കിയും മിതവൃയം ശീലിച്ചും സഹകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അഭ്യർത്ഥിച്ചു പെരിനാട് പേരയം കിഴക്കേകല്ലട തഴവ തൊടിയൂർ കുലശേഖരപുരം ഇരവിപുരം എന്നീ പ്രദേശങ്ങളിലാണ് ജലക്ഷാമം രൂക്ഷം ഓച്ചിറ ചാത്തന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ വാട്ടർ അതോറിറ്റി ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്നാണ് ടാങ്കർ വിതരണത്തിന് ജലം ശേഖരിക്കുന്നത് ശാസ്താംകോട്ടയിൽ നിന്നുള്ള ജലം പര്യാപ്തമല്ലാത്തിനാൽ കൊല്ലം നഗരത്തിലെ ചില ഭാഗങ്ങളിൽ ജെ

കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള ജലവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു

എട്ട് സെഷനുകളിലായി നടക്കുന്ന യങ് സ്കോളേഴ്സ് കോൺഗ്രസിൽ പ്രശസ്ത ശാസ്ത്രജ്ഞർ അക്കാദമിക് വിദഗ്ദ്ധർ കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും

ഡി ജി

മനോജ് എബ്രഹാമിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുക

മുൻകൂർ അനുവാദമില്ലാതെ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നത് പൂർണമായും തടഞ്ഞതായി ജില്ലാ കളക്ടർ കെ വാസുകി അറിയിച്ചു

അന്വേഷണം യുണൈറ്റഡ് നഴ്സസ് അസോസിയോഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് പരാതി അന്വേഷിക്കാൻ ഡി ജി

ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി

എൻ എ മുൻ വൈസ് പ്രസിഡന്റ് സിബി മുകേഷ് നൽകിയ പരാതിയിലാണ് നടപടി

ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെ അസിസ്റ്റന്റ് കമ്മാൻഡന്റ് എ